അക്രമങ്ങൾക്കും കലാപങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരം വികസനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജമ്മുകാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ റിപ്പോർട്ട് ഇന്ത്യ തള്ളി റിപ്പോർട്ട് തെറ്റിദ്ധാരണാജനകമെന്ന് വിദേശകാര്യമന്ത്രാലയം

കോഴിക്കോട് താമരശ്ശേരിയിൽ ഉരുൾപ്പൊട്ടലിൽ മൂന്നു കുട്ടികളടക്കം ആറുപേർ മരിച്ചു തിങ്കളാഴ്ചവരെ അതിശക്തമായ മഴയ്ക്കു സാധ്യത

കഴിഞ്ഞ നാലുവർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്കാണ്ട് ഒട്ടേറെ ചെറുപ്പക്കാർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഛത്തീസ്ഗഡിലെ ഭിലായിയിൽ പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഒരു കാലത്ത് അക്രമങ്ങൾക്ക് പഴികേട്ട ബസ്തർ മേഖല ഇന്ന് രാജ്യത്തിന്റെ വ്യോമയാന ഭൂപടത്തിൽ സ്ഥാനം നേടിക്കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു ബസ്തറിലെ ജഗദൽപൂറിൽ നിന്നുമുള്ള വിമാന സർവ്വീസുകളുടെ ഉദ്ഘാടനം വിഡീയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നിർവ്വഹിച്ചു ഛത്തീസ്ഗഡിന്റെ പുതിയ തലസ്ഥാനമായ നയാ റായ്പൂർ രാജ്യത്തെ സ്മാർട്ട് സിറ്റികൾക്ക് മാതൃകയാണ് വൻ ധൻ പദ്ധതി നടപ്പിലായതോടെ രാജ്യത്തെ ആദിവാസികളുടെ ജീവിതനിലവാരവും വരുമാനവും ഉയർന്നിട്ടുണ്ട്

ഭിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ നവീകരണവും ശേഷിവർദ്ധപ്പിക്കലും ഇതിൽ ഉൾപ്പെടും ഛത്തിസ്ഗഡ് മുഖ്യമന്ത്രി രമൺസിംഗും ചടങ്ങിൽ സംബന്ധിച്ചു

വിവര കൈമാറ്റത്തിന് സാങ്കേതികവിദ്യ് ഏറെ ഗുണകരമാവുകയാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശൃത്തിൽ പറഞ്ഞു

പത്തുകോടി കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപവരെ പ്രതിവർഷം ആരോഗൃ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണിത്

രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ പദ്ധതിയായിരിക്കും ഇതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു

റിപ്പോർട്ട് തെറ്റിദ്ധാരണാ ്ജനകമാണെന്നും അതിന്റെ ഉദ്ദേശ്യ ശുദ്ധി ചെയ്യപ്പെടേണ്ടതാണെന്നും വിദേശകാര്യമന്ത്രാലയ ചോദ്യാ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു

ജമ്മുകാശ്മീർ ഇന്തൃയുടെ അവിഭാജൃ ഘടകമാണെന്നും കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ബലം പ്രയോഗിച്ച് കയ്യേറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ശ്രീ

കൈയടക്കി വച്ചിരിക്കുന്ന ഭൂപ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുകയാണെന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പാകിസ്ഥാൻ നടത്തുന്നത് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനമാണ് ഇതിനെകുറിച്ച് റിപ്പോർട്ടിൽ ഒരു പരാമർശവുമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

സൈനികനെ കണ്ടെത്തുന്നതിനായി സുരക്ഷാസേന മ്മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്

തുക അർഹരായവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് നല്കും

അടുത്തിടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു സന്ദർശിച്ചതിനു പിന്നാലെയാണ് തീരുമാനമുണ്ടായത്

ഫുട്ബോൾ കാർണിവൽ ഒരു മാസം നീണ്ടു നില്കും മത്സരത്തിൽ ആതിഥേയരായ ഗ്രൂപ്പ് റഷ്യ എ ഏഷ്യൻ പ്രതീക്ഷയായ സൌദി അറേബ്യയെ ഇന്ന് നേരിടുന്നതോടെ മത്സരങ്ങൾക്ക് തുടക്കമാകും

ഫൈദോർ സ്മോലോവിന്റെ ഗോളടി മികവിലാണ് റഷ്യ പ്രതീക്ഷയർപ്പിക്കുന്നത് സ്ട്രൈക്കർ മുഹമ്മദ് അൽ സഹ്ലാവിയുടെ മിന്നുന്ന ഫോമിലാണ് സൌദിയുടെ പ്രതീക്ഷ റഷ്യയ്ക്കെതിരെ ഇതിനു മുമ്പു കളിച്ച ഏകമത്സരത്തിൽ ജയിച്ചതിന്റെ ആത്മവിശ്വാസവും അവർക്ക് കൂട്ടിനുണ്ട് വ്യഖ്യാത സംഗീതജ്ഞരായ റോബി വില്യംസും ഐഡാ ഗാരിഫുള്ളിനയും ഒരുക്കുന്ന സംഗീതപരിപാടിയാണ് ഉദ്ഘാടന ചടങ്ങിന്റെ സവിശേഷത

തിങ്കളാഴ്ചവരെ അതിശക്തമായ മഴയ്ക്കു സാധ്യത കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ മൂന്നുകുട്ടികളടക്കം ആറുപേർ മരിച്ചു കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് പാലക്കാട് എന്നീ ജില്ലകളിൽ അതീവ ജാഗ്രതയ്ക്കുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും ഈ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നല്കി

സംസ്ഥാനത്ത് ദുരിതാശ്വാസപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്

ന്യൂഡൽഹിയിൽ നബാർഡിന്റെ പുസ്തകപ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക മേഖലയിൽ ജലസേചനത്തിന് മുമ്പ് വെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

എമാരെ അയോഗൃരാക്കുകയായിരുന്നു

തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസാണ് അപകടത്തിൽപ്പെട്ടത്

അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഫ്ഗാൻ ടീമിന്റെ ആദ്യ ടെസ്റ്റാണ് ഇത്

സ്റ്റേറ്റ പ്രിലിമിനറി പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ പുനർമൂല്യനിർണ്ണയം നടത്തുന്നതിനുള്ള അലഹബാദ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി റദ്ദാക്കി ഹൈക്കോടതി വിധിക്കെതിരെ ജസ്റ്റിസ് യു യു ലളിത് ജസ്റ്റിസ് ദീപക് ഗുപ്ത എന്നിവർ അടങ്ങിയ അവധിക്കാല ബഞ്ച് അപ്പീൽ അനുവദിച്ചിരുന്നു